ആവേശം പാരമ്യത്തിൽ

എഫും യു ഡി എഫും അഴിമതിയുടെയും ദുർഭരണത്തിന്റെയും കാര്യത്തിൽ ഇരട്ട സഹോദരങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഡി എഫ് ഗവൺമെന്റിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണ വും തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഓഡിയോ രും പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിമാരും എല്ലാ പാർട്ടികളുടെയും ദേശീയ നേതാക്കളും അവസാന മണിക്കൂറുകളിലെ പ്രചാരണത്തിന് ആവേശം പകരാൻ കേരളത്തിലെത്തി

കോവിഡ് പശ്ചാത്തലത്തിൽ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശ ത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയെങ്കിലും പ്രവർത്തകരുടെ ആവേശം അതിരു കടക്കാതിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മുന്നിട്ടിറങ്ങേണ്ടി വരും നാളെ വൈകിട്ട് ഏഴു വരെയാണ് പരസ്യ പ്രചാരണത്തിന്റെ സമയം പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് പരമാവധി വോട്ടർമാരെയും നേരിൽക്കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ മുന്നിട്ടിറങ്ങി യിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണെങ്കിലും നേതാക്കളും സ്ഥാനാർത്ഥി കളും വോട്ടർമാരെ നേരിൽക്കാണാൻ വീടുകളിലെത്തും

എഫും യു

എഫും അഴിമതി യുടെയും ദുർഭരണത്തിന്റെയും കാര്യത്തിൽ ഇരട്ട സഹോദരങ്ങളാ ണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ ഇടത് ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ വികസന പരിപാടികളോട് സഹകരിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എൻ ഡി എ പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിന്റെ വികസന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ശക്തിയായി ജനങ്ങൾ ബി ജെ പി യെ കാണുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു യുവാക്കളും വനിതകളും കന്നിവോട്ടർമാരും പ്രൊഫഷണ ലുകളും ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണയ്ക്കുന്നതായും പ്രധാനമന്ത്രി വിലയിരുത്തി നേരത്തെ പത്തനംതിട്ടയിൽ കോന്നിയിലെ എൻ

മാറി മാറി ഭരിക്കുന്ന ഇരു മുന്നണികളെയും രൂക്ഷമായി വിമർശിച്ച നരേന്ദ്രമോദി അവരുടെ ഭരണം ജനങ്ങൾക്ക് മടുത്തുവെന്നും എൻ ഡി

കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ അവഹേളിച്ച എൽ ഡി എഫ് ഗവൺമെന്റ് ശബരിമല ഭക്തരെയും വിശ്വാസി സമൂഹത്തെയും ലാത്തികൊണ്ടാണ് നേരിട്ടതെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ബി ജെ പി നേതാക്കളും സ്ഥാനാർത്ഥികളുമായ കുമ്മനം രാജാശേഖരൻ ശോഭാസുരേന്ദ്രൻ കൃഷ്ണകുമാർ ബി വി രാജേഷ് മററ് നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു

ഡി എ യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഇന്ന് ഉച്ചകഴിഞ്ഞ് വയനാട് ജില്ലയിലെത്തും മീനങ്ങാടി ശ്രീകണ്ഠപ്പ ഗൌഡർ സ്റ്റേഡിയത്തിലെ മഹാറാലിയിൽ അദ്ദേഹം സംസാരിക്കും വയനാട്ടിലെ പ്രചാരണത്തിന് ശേഷം അമിത് ഷാ ഹെലികോപ്റ്ററിൽ കോഴിക്കോട്ടെത്തും തുടർന്ന് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും വൈകിട്ട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും അമിത് ഷാ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും ദേദ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വൈകിട്ട് കൊല്ലത്ത് എൻ ഡി എ യുടെ പ്രചാരണത്തിനെത്തും ഭരണിക്കാവിൽ കുന്നത്തൂർ മണ്ഡലം എൻ ഡി എ തെരഞ്ഞെടുപ്പ് പൊതുയോഗം പ്രഹ്ലാദ് ജോഷി ഉദ്ഘാടനം ചെയ്യും രുഭ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യം വലിയ പുരോഗതിയിലേക്ക് കുതിക്കുകയാണെന്ന് ബി ജെ പി നേതാവും മുൻ കേന്ദ്ര മന്ത്രിയുമായ ഷാനവാസ് ഹുസൈൻ പറഞ്ഞു വികസനത്തിന്റെ പേരിൽ സംസ്ഥാന ഗവൺമെന്റ് കുപ്രചാരണം നടത്തുകയാണെന്നും അദ്ദേഹം കണ്ണൂരിൽ എൻ ഡി എ പ്രചാരണ പരിപാടിയിൽ പറഞ്ഞു രുര കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് പാലക്കാട് ജില്ലയിൽ എൻ ഡി

പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിലെ റോഡ് ഷോകളിൽ അദ്ദേഹം പങ്കെടുക്കും

എഫ് ഗവൺമെന്റിനെതിരേ ഉന്നയിച്ച ഒരു ആരോപണവും തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണം ഉന്നയിക്കുന്നവരുടെ വിശ്വാസ്യതയാണ് യഥാർത്ഥത്തിൽ തകരുന്നതെന്ന് കണ്ണൂർ ചിറ്റാരിപ്പറമ്പിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യവെ അദ്ദേഹം പറഞ്ഞു മതനിരപേക്ഷത തകർക്കാൻ ബോധപൂർവമായ നീക്കമാണ് ദേശീയതലത്തിൽ നടക്കുന്നതെന്നും പിണറായി പറഞ്ഞു

ഡി എഫിന്റെ ജനകീയ അടിത്തറ വളരെ വിപുലമായിരി ക്കുകയാണെന്നും ഇടതുപക്ഷത്തെ എങ്ങനെ നേരിടുമെന്ന അങ്കലാപ്പിലാണ് പ്രതിപക്ഷമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിൽ പറഞ്ഞു

ഡി

രുമ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് വീണ്ടും കേരളത്തിലെത്തും രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം കൊയിലാണ്ടി പുറമേരി എന്നിവിടങ്ങളിലെത്തി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും ഉച്ചകഴിഞ്ഞ് രാഹുൽഗാന്ധി കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഇരിക്കൂർ കണ്ണൂർ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും വൈകിട്ട് കണ്ണൂരിലെ റോഡ് ഷോയിലും രാഹുൽ പങ്കെടുക്കും

ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയുടെ രണ്ടാം കേരള സന്ദർശനം റദ്ദാക്കി പ്രിയങ്കയുടെ ഭർത്താവിന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അവർ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചതുകൊണ്ടാണ് യാത്ര ഒഴിവാക്കിയത് ഇന്ന് തമിഴ്നാട്ടിലും നാളെ കേരളത്തിലും പര്യടനം നടത്താനായിരുന്നു മുൻ തീരുമാനം പ്രിയങ്കയ്ക്ക് പകരം നേമത്ത് നാളെ രാഹുൽ ഗാന്ധി പ്രചാരണത്തിനെത്തും രും കോവിഡ് പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശകൊട്ടിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു ആൾക്കൂട്ടം അനുവദിക്കാനാവില്ലെന്നും നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ പൊലീസ് കേസെടുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി

രും സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടർപട്ടികയിൽ ഇരട്ട വോട്ട് റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി പ്രകടിപ്പിച്ചു വിവാദത്തിലെ വസ്തുതകൾ പരിശോധിക്കുന്നതിന് ബിഹാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എച്ച് ആർ ശ്രീനിവാസയെ കേരളത്തിലേക്കയച്ചു ആറ് ഐ

തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സംഘം കേരളത്തിൽ തുടരും രും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മൂന്നുദിവസം മാത്രം ശേഷിക്കെ ഇടുക്കിയിലും കനത്ത പ്രചാരണച്ചൂടാണ് മൂന്ന് മുന്നണികളും അവസാന ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണം തുടരുകയാണ്

സ്ഥലത്തില്ലാത്തവർ സ്ഥലം മാറിപ്പോയവർ മരിച്ചവർ എന്നിവരുടെ വിശദാംശങ്ങൾ പരിശോധനയിലൂടെ ക്രമീകരിച്ച് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇത് പ്രിസൈഡിങ് ഓഫീസർമാർക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥലം മാറിപ്പോയവരും സ്ഥലത്തില്ലാത്തവരും ഉൾപ്പെടെ പട്ടികയിൽപ്പെട്ടവർ വോട്ട് ചെയ്യാൻ എത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പാലിക്കും

സ്വയം സംരക്ഷണത്തോടൊപ്പം മറ്റുള്ളവരിലേക്ക് രോഗം പകരാൻ സാധ്യത കുറക്കുക കൂടിയാണ് വാക്സിനേഷൻ വഴി ലക്ഷ്യമിടുന്നതെന്ന് ഡോ

ആറുകോടിയിലേറെ പേർ ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

എസ്